അന്വേഷണം തുടരുന്നു പരാതിക്കാരനായ റോജോയുടെ മൊഴി രേഖപ്പെടുത്തി

ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രത്തിന്റെ പ്രണാമം

ആരോഗൃ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

ചികിത്സാ നേട്ടത്തിലുപരി ശാക്തീകരണ രംഗത്തെ വലിയ ചുവടുവയ്പു കൂടിയാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലും ഛർക്കി ദാദ്രിയിലും തനേസറിലും തെരഞ്ഞെട്ടൂപ്പ് പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും

മഹാരാഷ്ട്രയിൽ ബി ജെ

ജെ

വൂർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഢ്നാപിസും ചേർന്നാണ് പ്രചാരണ പത്രിക പുറത്തിറക്കിയത് കഴിഞ്ഞ് അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളുമാണ് പ്രകടന പത്രികയിലുള്ളതെന്ന് ശ്രീ

സംസ്ഥാനത്ത് അഞ്ച് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും മഹാരാഷ്ട്രയെ വരൾച്ച രഹിത സംസ്ഥാനമായി മാറ്റുമെന്നും പ്രകടന പത്രിക പറയുന്നു

അതിർത്തി കടന്നുള്ള തീവ്രവാദം കുറയ്ക്കുന്നതിനും കശ്മീർ പുനഃസംഘടന ഗുണകരമാകും തീവ്രവാദികളെ സഹായിക്കുന്ന പാകിസ്ഥാനെ പേരെടുത്തു പറയാതെ ഉപരാഷ്ട്രപതി വിമർശിച്ചു

കത്വയിൽ പൊതു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

താഴ്വരയിൽ സ്ഥിതി ശാന്തമാണ്

പ്രതിഷേധ പ്രകടനങ്ങളുമില്ല

രാജ്യത്തെ ഏറ്റവും മികച്ച പൊലീസ് സംവിധാനമാണ് ജമ്മു കശ്മിരിലേതെന്ന് ശ്രീ സത്യപാൽ മാലിക് പറഞ്ഞു പൊലീസിന്റെ സുരക്ഷയ്ക്കും മീകുച്ച സംവിധാനമാണുള്ളത്

മൊബൈൽ സംവിധാനമ്പ്പ്പുനഃസ്ഥാപിക്കുന്നതിലുപരി കശ്മീർ ജനതയുടെ സുരക്ഷയിക്ക്ടാണ് കൂടുതൽ പ്രാധാനൃം നൽകുന്നത്

വിനോദ സഞ്ചാരികൾ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്

ഇൻർനെറ്റ് സേവനം ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും ഗവർണർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പൂഞ്ച് ജില്ലയിൽ ഇന്ത്യൻ സൈനീക പോസ്റ്റുകൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ഇന്ന് രാവിലെ പാകിസ്ഥാൻ പ്രകോപനം കൂടാതെ വെടിയുതിർക്കുകയായിരുന്നു കസ്ബ കിർണി മേഖലകളിൽ വെടിവയ്പ്പും ഷെല്ലാക്രമണവുമുായതായി പ്രതിരോധ വക്താവ് അറിയിച്ചു ഇന്ത്യൻ സേന തിരിച്ചടിച്ചു ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോഴും ഇരു ഭാഗത്തു നിന്നും വെടിവയ്പ് തുടരുകയാണ് ഇരു ഭാഗത്തും ആളപായമോ നാശനഷ്ടങ്ങളോ ഉായതായി റിപ്പോർട്ടില്ല

ഗന്തേർബാൽ ജില്ലയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് രജൌരി നിവാസികളാണ് ഇവർ പൊലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് ഭീകര ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഇവർ എത്തിച്ചിരുന്നതായി പൊലീസ് അറിയിച്ചു നിരവധി ആയുധങ്ങൾ ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്

ദക്ഷിണ കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം

നിക്ഷേപകരുടെ താൽപരൃം സംരക്ഷിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പ് നൽകി

യൂറോപ്യൻ യൂണിയനിലെ ഇന്ത്യയുടെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് നെതർലാന്റെന്ന് രാഷ്ട്രപതി പറഞ്ഞു

ആഗോളതലത്തിൽ അറിയപ്പെടുന്ന കാർഷിക കമ്പനികളും ഇവയിലുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു

പ്രതിരോധ രംഗത്ത് ഡോ കലാമിന്റെ സംഭാവന വളരെ വിലപ്പെട്ടതാണ് ഡോ കലാമിന്റെ പ്രതിബദ്ധതയും രാജ്യസ്നേഹവും ദീർഘവീക്ഷണവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

രാജ്യത്തെ ജനങ്ങൾക്ക് കലാം ഇപ്പോഴും പ്രചോദനമാണെന്ന് ശ്രീ മ്യോദി പറഞ്ഞു ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയിര്യിരുന്ന എ പി ജെ അബ്ദുൾ കലാം പ്രശസ്തനായ മിസ്പൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനിയറുമായിരുന്നു ഇന്ത്യ ്തദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിന്റേയും ബാലിസ്റ്റിക് മിസൈലിന്റേയും നിർമ്മാണത്തിനും ഏക്കോപ്പനത്തിനും വിലഖപ്പട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട് പൊഖ്രാൻ അണ്വായുധ പരീക്ഷണത്തിന് പിന്നിലും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്

കേസിൽ ഇന്ന് കൂടത്തായി വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തും മുഖ്യപ്രതി ജോളി വ്യാജ വിൽപ്പത്രം ഉപയോഗിച്ച് വീടും പുരയിടവും സ്വന്തമാക്കിയെന്ന പരാതിയെ തുടർന്നാണ് മൊഴിയെടുക്കുന്നത്

രാവിലെ കണ്ണൂർ എസ്

ഉച്ചയ്ക്ക് ശേഷം കൃഷ്ണമേനോൻ സ്മാരക വനിത കോളേജിൽ പ്രശ്നോത്തരി നടക്കും

വനിതാ ശാക്തീകരണത്തിന് ഉയർന്ന പരിഗ്രണന് നൽകണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ട്ടിറ്ററിൽ കുറിച്ചു സംരംഭകത്വ പാതയിലൂടെ സ്വശ്രയത്വത്തിന് വനിത്രിക്കളെ പ്രാപ്തരാക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാക്കണം

തൊഴിൽ പ്രാവീണ്യത്തിന് മികച്ച അവസരം നൽകുകയാണ് ഏറെ പ്രാധാനൃമർഹിക്കുന്ന വസ്തുതയെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു